കൈവരിക്കാനുള്ള ശേഷി ഇന്തൃയ്ക്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പുതിയ കേന്ദ്ര പദ്ധതി കാർഷിക രംഗത്ത്തി ഭൌതിക സാഹചരൃങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്ര മന്ത്രി നര്ർ ്ദ്ദ്ദ്സിംഗ് തോമർ

ഓക്സ്ഫോർഡ് വാക്സിന്റെ ര്ണ്ടാംഘട്ട ക്തിനിക്കൽ പരീക്ഷണം ചെന്നൈയിലും പൂനെയിലും ആരംഭിച്ചു

പ പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തത്തിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി വോയീസ് പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപ്പാദകരാകാനുള്ള കഴിവ് ഇന്ത്യയ്ക്ക് ഉണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു

പുതിയ കേന്ദ്ര പദ്ധതി കാർഷിക മേഖലയിലെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഗുണകരമാകുമെന്ന് ശ്രീ

കർഷകരുടെ ക്ഷേമവും സുസ്ഥിരതയുമാണ് സർക്കാരിന്റെ പ്രധാന പരിഗണന എന്ന് അദ്ദേഹം പറഞ്ഞു ആത്മ നിർഭർ ഭാരതിന്റെ കീഴിൽ കർഷകരെ വ്യാവസായിക മേഖലയിലേയ്ക്ക് എത്തിക്കാനും ഇതിലൂടെ വരുമാനം ഇരട്ടിയാക്കാ നുമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു

ചെന്നൈയിൽ രണ്ട് പ്രമുഖ ആരോഗൃ സ്ഥാപനങ്ങളിലുണ് ഓക്സ്ഫോർഡ് വാക്സിൻ കാൻഡിഡേറ്റ് കോവിഷീൽഡിന്റെ രണ്ടും മൂന്നും ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചത് ഓക്സ്ഫോർഡ് സ്റ്റ്വേകലാശാലയും അസ്ട്രാസെനെക്കയും സംയുക്തമായി വികസിപ്പിച്ചുകോവിഷീൽഡ് വാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണം നടത്തുന്ന ഇന്ത്യയിലെ പതിനേഴ് സ്ഥലങ്ങളിൽ ഒന്ന് ചെന്നൈയാണ്

ഇതിന്റെ ഭാഗമായി ഇരുരാജ്യങ്ങളും ചർച്ച നടത്തി റഷ്യയുടെ വാക്സിൻ സ്പുട് നിക് അഞ്ചിന്റെ നിർമാണത്തിൽ സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാ യിരുന്നു ചർച്ച ഇന്ത്യയുമായി ചേർന്ന് വാക്സിൻ നിർമിക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം റഷ്യ അറിയിച്ചിരുന്നു ഇതിൽ രാജ്യത്തിന്റെ അനുമതി തേടിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ വാക്സിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയതായും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു

ലോക്ഡൌൺ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി അറിയിച്ചു കളക്ടർമാരുമായും ആരോഗ്യ വിദഗ്ധരുമായും നാളെ നടക്കാനിരിക്കുന്ന കോവിഡ് അവലോകന യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി

സ്വാശ്രയത്വം നേടുന്നതിനും മാനവകുലത്തെ സേവിക്കൂന്നുതിനും രാജ്യത്തെ ഓരോ പൌരന്റെയും സംരംഭകത്വ കഴിവുകളും പ് സ്റാ്ങ്കേതിക നൈപുണ്യവും പ്രയോജനപ്പെടു ത്തണമെന്നും നമ്മുടെ ഷ്ട്റ്ദേശിക വിഭവങ്ങൾ അതിനായി ഉപയോഗ പ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ച ഉഡാൻ പദ്ധതിയുടെ നാലാം ഘട്ടത്തിൽ സീപ്ലെയിനുകളെയും ഹെലികോപ്റ്ററുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ദേശീയ ഡിജിറ്റൽ ആരോഗൃ മിഷന്റെ പ്രഖ്യാപനം സ്വാതന്ത്രൃ ദിന പ്രസംഗ ത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു

ദാദ്ര നഗർ ഹവേലിയിലും ദാമൻ ദിയുവിലും പദ്ധതി ഉടൻ പ്രാബല്യത്തിൽവരും

പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ തിരുവനന്തപുരം വെള്ളയമ്പലം സ്കയറിലുള്ള അയ്യൻകാളി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും ഡെപ്യൂട്ടി സ്പീക്കർ വി

ബാലൻ കടകംപളളി സുരേന്ദ്രൻ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തും

സാമൂഹിക അകലം സംബന്ധിച്ചുള്ള എല്ലാ മാർഗ്ഗ നിർദ്ദേശങ്ങളും സെഷനിൽ പാലിക്കു മെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് സെഷന്റെ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് പ്രത്യേക യോഗം ചേർന്നതായും ശുചീകരണവും മറ്റ് ക്രമീകരണങ്ങളും ഉൌർജ്ജിതമായി നടത്താൻ ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളോടും നിർദ്ദേശിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി സഭാംഗങ്ങൾക്കും മറ്റ് പാർലമെന്റ് ഉദ്യോഗസ്ഥർ ക്കുമുള്ള മാർഗ്ഗ നിർദ്ദേശങ്ങൾ ക്രമീകരിച്ചു വരുന്നതായും ശ്രീ

ഘോഷയാത്ര നടത്തിയാൽ കോവിഡ് വ്യാപനത്തിന് ഇടയാക്കുന്നത് ഒരു വിഭാഗമാണെന്ന ആരോപണമുണ്ടാകു മെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അഭിപ്രായപ്പെട്ടു അത്തരം ഒരു സ്ഥിതി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആവശ്യം തള്ളിക്കൊണ്ട് ചീഫ് ജസ്റ്റിസി അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കി

ഇ നീറ്റ് പരീക്ഷകൾ നടത്തുന്നതിന് ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു മെഡിക്കൽ എൻജിനീയറിങ് പ്രവേശനത്തിനായുള്ള ജെ

പരീക്ഷ എഴുതുന്ന വിദ്യാർഥികളുടെയും പരീക്ഷാ നടത്തിപ്പ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കാണ് പരമ പ്രാധാന്യം നൽകുന്നതെന്ന് എൻ ടി എ ഡയറക്ടർ ജനറൽ ഡോ വിനീത് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു

ക്യാബിനറ്റ് സെക്രട്ടറി ഇന്നലെ നടത്തിയ യോഗത്തിൽ ഒമ്പത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെയും കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക തെലങ്കാന ഗുജറാത്ത് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിരീഗതികൾ ആണ് ക്യാബിനറ്റ് സെക്രട്ടറി വിലയിരുത്തിയത്